തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാണിക്യവിളാകം പൂന്തുറ പുത്തൻപള്ളി വാർഡുകൾ കൊല്ലത്തെ ചവറ പന്മന ആലപ്പുഴയിൽ പട്ടണക്കാട് കടക്കരപ്പള്ളി ചേർത്തല സൌത്ത് മാരാരിക്കുളം നോർത്ത് കോടംതുരുത്ത് കുത്തിയതോട് തുറവൂർ ആറാട്ടുപുഴ എറണാകുളത്ത് ചെല്ലാനം മലപ്പുറത്ത് വെളിയംകോട് പെരുമ്പടപ്പ പൊന്നാനി മുനിസിപ്പാലിറ്റി താനൂർ മുനിസിപ്പാലിറ്റി എന്നീ തീര മേഖലകളിലാണ് ് ഇന്ന് മുതൽ നിയന്ത്രണം